കേന്ദ്രമന്ത്രി പി ചിദംബരത്തെ നാല് ദിവസത്തേയ്ക്ക് സി ബി

എ ഇ ബഹ്റിൻ രാഷ്ട്ര സന്ദർശനത്തിനായി പ്രധാനിമ്പ്രി നരേന്ദ്രമോദി യാത്രതിരിച്ചു

നിയന്ത്രണങ്ങൾക്ക് ഇളവ് ജനജീവിതം സാധാരണനിലയിലേയ്ക്ക്

വിവരങ്ങൾ കൈമാറാൻ സംസ്ഥാനത്ത് ഓൺലൈൻ നിരീക്ഷണ സംവിധാനം തയ്യാറായി

ആഭ്യന്തര സുരക്ഷ മുഖ്യചർച്ചാ വിഷയം

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തെ നാല് ദിവസത്തേയ്ക്ക് സി ബി

പ്രത്യേക സി ബി ഐ കോടതിയാണ് ഉത്തരവിട്ടത് തിങ്കളാഴ്ച വരെ പി ചിദംബരം സി ബി

തെളിവെടുപ്പ് പൂർത്തിയായി എന്ന ചിദംബരത്തിന്റെ വാദം കോടതി തള്ളി

എക്സ് മീഡിയാ അഴിമതി കേസിലും കള്ളപ്പണം വെളിപ്പിക്കൽ കേസിലും സ്രിയുക്ത അന്വേഷണം നേരിടുന്ന മുൻ കേന്ദ്ര ധനമന്ത്രി പി

അഴിമതി ആരോപ്ണത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് ശരിവെയ്ക്കുന്നതാണ് സി ബി

നാല് ദിവസത്തേയ്ക്കാണ് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് അനുവദിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്ക് ദിവസേന അര മണിക്കൂർ അദ്ദേഹത്തെ കാണാനും കോടതി അനുവദിച്ചിട്ടുണ്ട്

അന്വേഷണവുമായി പി ചിദംബരം സഹകരിക്കുന്നില്ലെന്നും കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമുണ്ടെന്നുമുള്ള സി ബി

ശക്തമായ സ്ഥാധീനമുള്ള നേതാവായതിനാൽ സാക്ഷികളെയും തെളിവുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചു കൂടാതെ കേസിലെ മറ്റു പ്രതികളുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ ഏജൻസികളുടെ ആവശ്യവും കോടതി പരിഗണിച്ചു ഒന്നര മണിക്കൂർ വാദം കേട്ടതിന് ശേഷമാണ് കോടതി വിധി പറഞ്ഞത് കേസിൽ മാപ്പുസാക്ഷിയായ ഇന്ദ്രാണി മുഖർജി നൽകിയ മൊഴിയും തെളിവുകളും അടങ്ങിയ കേസ് ഡയറി സി ബി

കപിൽ സിബൽ മനു അഭിഷേക് സിങ്വി തുടങ്ങിയ പ്രമുഖ അഭിഭാഷകരാണ് ചിദംബരത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഇന്നലെ രാത്രിയാണ് ഡൽഹിയിലെ ജോർബാഗിലുള്ള വസതിയിൽ നിന്ന് ചിദംബരത്തെ കസ്റ്റഡിയിലെടുത്തത്

ഫ്രാൻസ് യു

ഈ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും പുതിയ മേഖലകളിൽ സഹകരണം സാധ്യമാക്കുന്നതിനും സന്ദർശനം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പ്രധാനമന്ത്രി ഫിലിപ്പി എന്നിവരുമായി താൻ സംഭാഷണം നടത്തുമെന്ന് സന്ദർശനത്തിനുമുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു

ഇയിൽ അബുദാബി കിരീടാവകാശി ഷെയ്ക്ക് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനുമായി സമഗ്രമായ ചർച്ചുകൾ നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഥമ ബഹറിൻ സന്ദർശനമാണിത് ബഹറിൻ പ്രധാനമന്ത്രി ഷെയ്ക്ക് ഖാലിഫാ ബിൻ സൽമാൻ അൽ ഖാലിഫ ബഹറിൻ രാജാവ് ഷെയ്ക്ക് അഹമ്മദ് ബിൻ ഇസ അൽ ഖലിഫ എന്നിവരുമായും സംഭാഷണങ്ങൾ നടത്തും

ബാൾട്ടിക് രാജ്യങ്ങളിലെ സന്ദർശനത്തിനിക്ട്ട എസ്റ്റോണിയൻ രാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്കിടെയാണ് ഉപരാഷ്ട്രപതി ഇപ്രകാരം അഭിപ്പായ്ക്പെട്ടത് ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി ഇല്ലാതാക്കിയതിലൂടെ പ്രദേശത്തിന്റെ സുസ്ഥിര വികസനവും മികച്ച ഭരണ നീർപ്പഹണവും സാധ്യമാകുമെന്നും ശ്രീ നായിഡു വൃക്തമാക്കി കാശ്മീർ വിഷയം അന്താരാഷ്ട്ര പ്രശ്നമാണെന്നുള്ള പാകിസ്ഥാന്റെ ആരോപണങ്ങളെ ഉപരാഷ്ട്രപതി നിരാകരിച്ചു ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ സമിതിയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് ബാൾട്ടിക് രാഷ്ട്രങ്ങളുടെ പിന്തുണയും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു ബാൾട്ടിക് സന്ദർശനം പൂർത്തിയാക്കി ശ്രീ വെങ്കയ്യ നായിഡു ഇന്ന് ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തി

സ്കൂളുകളിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും ഹാജർ നിലയിൽ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് ശ്രീനഗറിന്റെ മുഴുവൻ മേഖലയിലും കാശ്മീരിന്റെ കൂടുതൽ പ്രദേശങ്ങളിലും നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ചിട്ടുണ്ട്

കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ സമാജ്വാദീ പാർട്ടി രാഷ്ട്രീയ ജനതാദൾ ലോക്താന്ത്രിക് ജനതാദൾ തുടങ്ങിയ പാർട്ടികൾ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് സി

ഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി

ഐ ജനറൽ സെക്രട്ടറി ഡി

ജമ്മുകാശ്മീരിൽ സമാധാനം സ്ഥാപിക്കുക വാർത്താവിനിമയബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ മുദ്രാവാകൃങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്

ആരോഗ്യം സുരക്ഷാ സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളിലുള്ള ആശയങ്ങൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിനും പരസ്പരം കൈമാറുന്നതിനുള്ള വേദിയാണ് മേഖലാ കൌൺസിലുകൾ

പാർപ്പിട പദ്ധതികൾക്കായി ഭൂമിയ്ക്കുടെ ക്കെമാറ്റം പൊലീസ് സേനയുടെ നവീകരണത്തിനായി കൂടുതൽ കേന്ദ്ര ഫണ്ട് അനുവദിക്കൽ തുടങ്ങിയൂവിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച നടന്നു മയക്കുമരുന്ന് കൂറ്റ്കൃതൃങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

ഒറ്റ ഡോക്ടറുള്ള ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥകാര്യ ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഈ സംവിധാനത്തിലൂടെ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ടാബോ ഉപയോഗിച്ച് രോഗവിവരം രേഖപ്പെടുത്താനാവും ഇതുവഴി രോഗവിവരം അപ്പപ്പോൾ അറിയാനും ഉടൻ തന്നെ ആ മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും സാധിക്കും ആരോഗ്യ വകുപ്പിന്റെ നിലവിലുള്ള നിരീക്ഷണ സംവിധാനത്തിന് പുറമേ പ്രളയാനന്തര പകർച്ചവ്യാധികൾ തടയുന്നതിനാണ് ഈ ഓൺലൈൻ സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നത്

നേപ്പാൾ പ്രസിഡന്റ് ബിദ്യാദ്ദേപി ഭണ്ഡാരിയുമായും പ്രധാനമന്ത്രി കെ

നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി ശങ്കർദാസ് ബൈരാഗി നേപ്പാളിലെ ഇന്ത്യൻ സ്ഥാനപതി മഞ്ജീവ് സിംഗ്പുരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു നേരത്തേ നടന്ന ഇന്ത്യാ നേപ്പാൾ വിദേശമന്ത്രിമാരുടെ സംയുക്തയോഗത്തിൽ ഉഭയകക്ഷി പ്രശ്നങ്ങൾ ചർച്ചചെയ്തു സാമ്പത്തിക പങ്കാളിത്തം വ്യാപാരം ഊർജ്ജവും ജലവിഭവവും വിദ്യാഭ്യാസം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം സംയുക്ത കമ്മീഷനിൽ ചർച്ചാവിഷയമായി

അസം മേഘാലയ കേഡറിലെ ഐ

കൃാബിനറ്റ് സെക്രട്ടറിയായി രാജീവ് ഗൌബ നിയമിതനായപ്പോൾ ഉണ്ടായ ഒഴിവിലേക്കാണ് ശ്രീ

വിരുദുനഗറിലെ ആംബൂരിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റേയും സംയുക്ത നിയന്ത്രണത്തിലാണ് പരീക്ഷണ ശാല സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപനം ഒരു മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്ന് ഉദ്ഘാടനം നിർവ്വഹിച്ച കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോ

പടക്കങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ച് ഉല്പാദകർക്ക് ഹരിത സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള സൌകരൃങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമായിരിക്കും നിലവിൽ അവ നാഗ്പൂരിലെ പരീക്ഷണശാലയിൽ അയച്ചാണ് പരിശോധിച്ചു വരുന്നത് പ്രസിദ്ധ പടക്കനിർമ്മാണ കേന്ദ്രമായ ശിവകാശിക്ക് സമീപമാണ് പുതിയ പരീക്ഷണ ശാല സ്ഥാപിച്ചിട്ടുള്ളത്

കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്

കഴിഞ്ഞ മാർച്ചിലാണ് നീരവ് മോദി ലണ്ടനിൽ പിടിയിലാകുന്നത്

വെസ്റ്റ് ഇൻഡീസാണ് എതിരാളികൾ ആന്റിഗ്വയിലെ നോർത്ത് സൌ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൽസരത്തിൽ ടോസ് നേടിയ പ്പിൻഡീസ് ഫീൽഗിംങ് തിരഞ്ഞെടുത്തു